ക്രമീകരണങ്ങൾ പൂർത്തിയായി

പ്രധാന്റമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനും അടക്കും ദേശീയ നേതാക്കൾ പ്രചാരണറാലികളിൽ ്സജീവം

അപാഷെ ഹെലിക്കോപ്റ്ററുകൾ ജൂലൈയിൽ ഇന്ത്യയിലെത്തും

മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ സൂപ്പർകിംഗ്സ് നേരിടും

കുന്നത്തി സുരക്ഷയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്

ഡൽഹിയിലെ ഏഴ് മണ്ഡലങ്ങളും നാളെ പോളിംഗ് ബൂത്തിലെത്തുകയാണ് ബിജെപി യും എഎപിയും കോൺഗ്രസും നേർക്കുനേർ വരുന്ന ഈ സീറ്റുകളിൽ ത്രികോണമത്സരമാണ് നടക്കുന്നത്

കേന്ദ്ര മന്ത്രിമാരായ രാധാ മോഹൻ സിങ് ഹർഷവർധൻ മനേകാഗാന്ധി നരേന്ദ്രസിംഗ് തോമർ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നിവരാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ ക്രിക്കറ്റ് താരമായ ഗൌതം ഗംഭീർ ഭോപ്പാലിലെ ബി ജെ

സ്ഥാനാർത്ഥി സാധ്വി പ്രജ്ഞാസിങ് താക്കൂർ ഡൽഹി ബി ജെ

അധ്യക്ഷൻ മനോജ് തിവാരി കോൺഗ്രസ് നേതാക്കളായ ഷീല ദീക്ഷിത് ജ്യോതിരാദിത്യ സിന്ധ്യ ദിഗ്വിജയ് സിംഗ് ഭൂവിന്ദർ സിങ് ഹോഡ എന്നിവരും ആറാംഘട്ടത്തിലെ മത്സരരംഗത്തുണ്ട് ഉത്തർപ്രദേശിൽ എസ് പി ബി

പി സഖ്യം മത്സരിക്കുന്ന അസംഗഢിലും അംബേദ്കർ നഗറിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല

ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിലാണ് ബിജെപിക്ക് വേണ്ടി മാനേക ഗാന്ധി മത്സരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൂടുതൽ വിവരങ്ങളുമായി ലിൻസ വോയിസ് ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ മേഖലയിലുമാണ് ഏഴാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇന്നും പ്രചാരണറാലികളിൽ സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റോബർട്ട്സ് ഗഞ്ചിലും ഗാസിപൂരിലും തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കും ജാർഖണ്ഡിലെ പകൂറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ ബി ജെ

കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഷാജപൂർ ധാർ ഖാർഗോർ എന്നിവിടങ്ങളിൽ പ്രസംഗിക്കും

മധ്യപ്രദേശിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്കെതിരെ നടത്തിയ പരാമർശങ്ങളെ തുടർന്നാണ് നടപടി

ഡോളറിലേക്കാണ് നാണ്യശേഖരം വർദ്ധിച്ചത്

റിസർവ് ബാങ്ക് കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ കരുതൽ ധനനിക്ഷേപത്തിലും വൻ വർദ്ധന ഉണ്ടായിട്ടുണ്ട്

പരീക്ഷണം വിജയകരമാക്കിയ ശാസ്ത്രജ്ഞരുടെ നേട്ടത്തെ രാജ്യം അഭിമാനപൂർവ്വം ഓർക്കുന്നതായി പ്രധാനമന്ത്രി ട്വീറ്റിൽ കുറിച്ചു

ബോയിങ്ങിന്റെ ആസ്ഥാനമായ അരിസോണയിലെ നിർമാണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ആദ്യ അപാഷെ ഹെലിക്കോപ്റ്റർ ഇ ന്ത്യൻ വ്യോമസേന എയർ മാർഷൽ എ

അപാഷെ പറപ്പിക്കുന്നതിനുള്ള പ്രത്യേക പൃരിശീലനം ഏതാനും വ്യോ മസേന പൈലറ്റുമാർ അലബാമയിലെ യൂഎസ് സേനാതാവളത്തിൽ നിന്ന് അടുത്തിടെ നേടിയിരുന്നു

ഇത് സംബന്ധിച്ച ശുപാർശയ്ക്ക് അമേരിക്കൻ പ്രതിരോധ കേന്ദ്രമായ പെന്റഗൺ അംഗീകാരം നൽകി അമേരിക്കയുടെ വിമാന വാഹിനി കപ്പലായ യു

എസ് എബ്രഹാം ലിങ്കൺ അടക്കമുള്ള നാവികവ്യൂഹത്തെ നേരത്തെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് അമേരിക്കൻ നീക്കം മേഖലയെ സംഘർഷഭരിതമാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ജസ്റ്റിസ് സജ്ജീവ് ഖന്നയുമടങ്ങുന്ന ബഞ്ചിന്റേതാണ് ഉത്തരവ്

വിട്ടയക്കപ്പെടുന്നവർ ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും ഇന്ത്യക്കാരായ രണ്ടുപേരുടെ ആൾ ജാമ്യവും മോചനശേഷമുള്ള അവരുടെ താമസസ്ഥലം സംബന്ധിച്ച വിവരങ്ങളും ൂനൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു

നിയമം നിലനിൽക്കുന്നതാണെന്നും സംവരണം നൽകുന്നത് ഭരണത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കില്ലെന്നും ജസ്റ്റിസുമാരായ യു

ലളിത് ഡി വൈ ചന്ദ്രചൂഡ് എന്നിവർ ഉൾപ്പെട്ട ബഞ്ച് വിധിച്ചു

ടി വിഭാഗക്കാർക്ക് സ്ഥാനക്കയറ്റത്തിൽ സംവരണം നൽകുന്ന നിയമത്തിനെതിരെ ഒരുകൂട്ടം ഹർജിക്കാർ നൽകിയ പരാതിയിലാണ് സുപ്രീംകോടതി വിധി

ഇരുകവ്വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ഇവിടെ സംഘർഷ്ട് വ്യാപിക്കാതിരിക്കാൻ ഇന്റർനെറ്റ് വാർത്താവിനിമയ സംവിധാനങ്ങൾ വിഛേദിച്ചു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ് നഗരത്തിൽ കർഫ്യൂ നാളെ കൂടി തുടരും സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് ബോറയെ ചുമതലപ്പെടുത്തി

റാംബാൻ ജില്ലയിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത്

ബോർഡർ റോഡ് ഓർഗനൈസേഷനും ദേശീയപാത അതോറിട്ടിയും ചേർന്നാണ് റോഡിലെ തടസ്സം മാറ്റിയത് കാശ്മീരിനെ രാജ്യത്തിന്റെ ഇതരഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാതയാണിത്

ശ്രീജഗന്നാഥ് ക്ഷേത്രം പുരി കൊണാർക്കിലെ് സൂര്യക്ഷേത്രം എന്നിവയാണ് സംഘം പരിശോധിച്ചത് ക്ഷ്ണ്ണാർക്ക് ക്ഷേത്രത്തിന്റെ അടിസ്ഥാന നിർമ്മിതിക്ക് ക്ഷതമു്ണ്ട്ടായിട്ടില്ലെന്ന് പുരാവസ്തു ഗവേഷകർ വിലയിരുത്തി

എൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ മുംബൈ ഇന്ത്യൻസിനെ ചെന്നൈ നേരിടും നാളെ ഹൈദരാബാദിലാണ് മത്സരം ഇന്നലെ നടന്ന രണ്ടാം യോഗൃതാ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ചെന്നൈ സൂപ്പർ കിംഗ്സ് ഫൈനലിൽ പ്രവേശിച്ചു